ത ലോക്ഡൌണിനെത്തുടർന്ന് മാറ്റിവെച്ച പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ രാവിലെ പുനഃരാരംഭിക്കും

വാർത്തകൾ വിശദമായി കോവിഡ് സാഹചര്യങ്ങളും പ്രതിരോധവും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാവിലെ പതിനൊന്നിനാണ് വീഡിയോ കോൺഫറൻസിലൂടെ യോഗം നടത്തുന്നത് നാലാംഘട്ട ലോക്ഡൌൺ അവസാനിക്കാനിരിക്കെ ചേരുന്ന യോഗം നിർണായകമാണ് ഇന്നലെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ എംപിമാരുടേയും എംഎൽഎമാരുടേയും യോഗം ചേർന്നിരുന്നു രുദ കോവിഡ് സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ എംപിമാരേയും എംഎൽഎ മാരേയും പങ്കെടുപ്പിച്ച് മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസ് ചർച്ച ഫലപ്രദമായിരുന്നില്ലെന്ന് കെ

സി സി വർക്കിങ്ങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി എംപിമാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പ്രത്യേക യോഗം വിളിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു രുര സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്നും അത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മലയാളികളെ തിരിച്ചെത്തിക്കുന്ന പാസിന്റെ മറവിൽ തമിഴ്നാട്ടിൽനിന്നും മറ്റും തൊഴിലാളികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതായി റിപ്പോർട്ടുണ്ട്

ബസ്സുകളിലും ബസ് സ്റ്റാന്റുകളിലും നിയന്ത്രണമില്ലാത്ത തിരക്കും ഓട്ടോറിക്ഷകളിൽ കൂടുതൽ പേർ സഞ്ചരിക്കുന്ന സാഹചര്യവും കണ്ടെത്തിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ച് ആളെ കയറ്റുന്ന വാഹന ഉടമകൾക്കെതിരെ നടപടിയെടുക്കുകയും പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യും

തിരക്ക് ഒഴിവാക്കാൻ പൊലീസ് കർശനമായി ഇടപെടുമെന്നും അദ്ദേഹം അറിയിച്ചു ദേദ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് മാറ്റിവെച്ച പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ഇന്ന് രാവിലെ പുനരാരംഭിക്കും

ഇന്നലെ വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷയും എസ്എസ്എൽസി പരീക്ഷയും പുനരാരംഭിച്ചിരുന്നു

ആരോഗ്യ വകുപ്പ് ജില്ലാ കലക്ടർമാർ തദ്ദേശ സ്ഥാപനങ്ങൾ പൊലീസ് കെഎസ്ആർടിസി പിടിഎ സ്കൂൾ മാനേജ്മെന്റ് കമ്മറ്റി എന്നിവയുടെ സഹകരണത്തോടെ ആദ്യ ദിവസത്തെ പരീക്ഷകൾ പരാതിയില്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു

തൃശൂർ കൊല്ലം ജില്ലകളിൽ നാലുപേർക്ക് വീതവും ആലപ്പുഴ കാസർകോട് ജില്ലകളിൽ മൂന്നുപേർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കണ്ണൂരിൽ നാലുപേർക്കും പാലക്കാട്ട് രണ്ടുപേർക്കും കോട്ടയത്ത് ഒരാൾക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു ചികിത്സയിലായിരുന്ന പത്തുപേരുടെ പരിശോധനാഫലം നെഗറ്റീവായി

ഇതിൽ രണ്ടുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്

ഇതിൽ നാലു പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ ചെന്നെയിൽ നിന്നും വന്നവരാണ് നേരത്തെ രോഗം ബാധിച്ച യുവതിയുടെ ബന്ധുവാണ് ഒരാൾ കോവിഡ് സ്ഥിരീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിരമ്പുഴ സ്വദേശി രോഗമുക്തി നേടി

ഇന്നലെ ആറു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

ഇന്നലെ ഒരാൾ രോഗവിമുക്തി നേടുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകളില്ല

എറണാകുളം ജില്ലയിൽ ഇന്നലെ അഞ്ച് പുതിയ പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചു ഒരു ദിവസത്തെ ഇടവേളയ്ക്കു ശേഷമാണിത് ചികിത്സയിലുണ്ടായിരുന്ന ചെന്നൈയിൽ നിന്നും എത്തിയ യുവതിയെ രോഗം മാറ്റി ഡിസ്ചാർജ് ചെയ്തു

കൊച്ചിയിൽ അബുദാബി ദുബായ് കുവൈറ്റ് ടെൽഅവീവ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളെ തിരിച്ചെത്തിച്ചു യാത്രക്കാരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി

ഇന്ന് വൈകീട്ട് ദുബായിൽ നിന്നും നാളെ പുലർച്ചെ താജികിസ്ഥാനിൽ നിന്നും വിമാനങ്ങൾ കണ്ണൂരിലെത്തും രുമ വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി ക്വാറന്റൈനിൽ കഴിയുന്നവരിൽ നിന്ന് ഈടാക്കിയ ഏഴ് ദിവസത്തെ ഹോട്ടൽ വാടക തിരിച്ചുനൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

എന്നാൽ പിന്നീട് ഇത് ഏഴ് ദിവസമായി പരിമിതപ്പെടുത്തിയിരുന്നു രുമ വിദേശത്ത് നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തുന്നവർ നിർബന്ധിത ക്വാറന്റൈനിൽ പോവണമെന്നിരിക്കെ അതിന്റെ ചെലവ് അവർ നൽകണമെന്ന സംസ്ഥാന ഗവൺമെന്റ് നിലപാട് കടുത്ത അനീതിയും വഞ്ചനയുമാണെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

രുമ കേരളത്തിലേക്ക് മുൻകൂട്ടി അറിയിക്കാതെ ട്രെയിനുകൾ അയക്കുന്ന വിവരം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ട്രെയിനിനെ പറ്റിയും യാത്രക്കാരെ പറ്റിയും മുൻകൂട്ടി വിവരം നൽകണമെന്ന് നേരത്തെ റെയിൽവെ മന്ത്രി പീയുഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനു ശേഷവും മറ്റൊരു ട്രെയിൻ ഇതേ രീതിയിൽ കേരളത്തിലേക്ക് അയക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ആരോഗ്യവകുപ്പ് ഏറ്റെടുത്ത സുൽത്താൻ ബത്തേരി വൈറോളജി ലാബിൽ കുരങ്ങുപനിയും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ രോഗങ്ങളുടെ പരിശോധന പുനരാരംഭിച്ചു